പ്രധാനമന്ത്രിയും രാജ്യത്തെ എല്ലാ അദ്ധ്യാപകർക്കും ആശംസകൾ നേർന്നു

മുൻനിരയിലെത്താൻ അദ്ധ്യാപികർ പിന്തുണ നൽകണമെന്ന് മുഖ്യമ്ത്രി പിണറായി വിജയൻ

പത്രികകളുടെ സൂക്ഷ്മപരിശോധന ആരംഭിച്ചു

വയനാട്ടിലെ പുത്തുമലയിൽ ശ്രീ മാധവ് ഗാഡ്ഗിൽ സന്ദർശനം നടത്തി

ഹൈക്കോടതി വെറുതെ വിട്ടു

മൽസരത്തിൽ ഇന്ത്യ ഇന്ന് ഒമാനെ നേരിടും

ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും ഡോ

രാജ്യത്തെ എല്ലാ അധ്യാപകർക്കും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ നേർന്നു മികച്ച അദ്ധ്യാപകർക്കുള്ള ദേശീയ അവാർഡുകൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ഉചയ്യും

ദേശീയ അദ്ധ്യാപക ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാന അദ്ധ്യാപക പുരസ്കാരങ്ങളും മുഖ്യമന്ത്രി വിതരണം ചെയ്തു ഒരു ക്ലാസ്സിൽ മികവുള്ള വിദ്യാർത്ഥികളും ശരാശരിക്ക് താഴെയുള്ള വിദ്യാർത്ഥികളും ഉണ്ടാകും എന്നാൽ ശരാശരിയ്ക്ക് താഴെയുള്ള വിദ്യാർത്ഥികൾക്കാണ് അദ്ധ്യാപകർ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ജോർജ്ജ് ഓണക്കൂർ ആകാശവാണിയോട് പറഞ്ഞു

ജലീൽ എ

മന്ത്രിമാരുമായി സംസാരിച്ച ശേഷം ഗവർണ്ണർ രാജ്ഭവനിലേക്ക് പ്പോയി

ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ

ഇന്നലെ നാമനിർദേശ പത്രിക നൽകിയ ജോസഫ് വിഭാഗം നേതാവ് ജോസഫ് കണ്ടത്തിലിനോട് പത്രിക പിൻവലിക്കാൻ പിജെ ജോസഫ് ആവശ്യപ്പെട്ടു വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യു

വൈകിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കോൺഫറൻസ് ഹാളിലാണ് യോഗം സേനയിലെ ഉദ്യോഗസ്ഥർക്കിടയിൽ ആത്മഷ്ടത്യ സംഭവങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ പ്രത്യേക കൌൺസിലിംഗ് സംഘടിപ്പിക്കുമെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ നേരത്തെ അറിയിച്ചിരുന്നു

പ്രതികൾ പേരു മാറ്റി പലയിടങ്ങളിൽ ഒളിവിൽ താമസിക്കുന്നതായും ഇവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ഉടനടി പോലീസിൽ വിവരം അറിയിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു മൊഴിയെടുക്കാൻ ഹാജരാകണമെന്ന് ജാസ്മിൻ ഷാ യോട് രേഖാമൂലം ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം മൊഴി നൽകാൻ എത്തിയില്ലായെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു യു എൻ എ അഴിമതിക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു

വയനാട് ഇൻട്രോ ദുരന്ത ഭൂമിയായ പുത്തുമലയടക്കം വയനാട്ടിലെ പ്രളയ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ ഗാഡ്ഗിൽ കമ്മിറ്റി ചെയർമാൻ മാധവ് ഗാഡ്ഗിൽ വയനാട്ടിലെത്തി ദുരന്തത്തിന്റെ ഇരകളും പരിസ്ഥിതി പ്രവർത്തകരുമായി അദ്ദേഹം കൽപ്പറ്റയിൽ ആശയവിനിമയം നടത്തും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്

തിരുവനന്തപുരം പാലക്കാട് കണ്ണൂർ എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്

കൂടുതൽ ജലമൊഴുക്കി വിടുന്ന സാഹചര്യത്തിൽ നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് കൊല്ലം ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി

വൃഷ്ടിപ്രദേശത്ത് കനത്തമഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഡാമുകളിൽ നിന്ന് കൂടുതൽ വെള്ളം ഒഴുക്കുന്നത് അനുബന്ധ പുഴകളുടെയും വെള്ളിയാങ്കൽ റഗുലേറ്റർ പരിസരത്തും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ട്രെയിൻ സർവ്വീസ് ഓണത്തിന് യാത്രക്കാരുടെ തിര്ക്ക് പരിഗണിച്ച് സെക്കന്ദരാബാദ് കൊച്ചുവേളി നിസാമാബുർദ് എറണാകുളം റൂട്ടുകളിൽ പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തുമെന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ അറിയിച്ചു സെക്കന്ദരാബാദിൽ നിന്ന് ഞായറാഴ്ച കൊച്ചുവേളിയിലേക്കും നിസാമബാദിൽ നിന്ന് എറണാകുളത്തേക്കും പുറപ്പെടുന്ന ട്രെയിനുകൾ അടുത്ത വെള്ളിയാഴ്ച്ച തിരിച്ചും സർവീസ് നടത്തും ഒഴിപ്പിക്കൽ നടപടി കൊല്ലം കോട്ടവാസൽ ആര്യങ്കാവ് തെന്മല തുടങ്ങി കിഴക്കൻ മേഖലയിൽ റെയിൽവേ ലൈനിനു സമീപം താമസിക്കുന്നവരെ അകാരണമായി ഒഴിപ്പിക്കാനുളള നടപടി നിർത്തിവയ്ക്കണമെന്ന് എൻ

തിരിച്ചിറപ്പളളി റെയിൽവേ ആസ്ഥാനത്ത് ചേർന്ന മധുര ത്രിച്ചി റെയിൽവേ ഡിവിഷൻ പരിധിയിൽ വരുന്ന പാർലമെന്റ് അംഗങ്ങളുടെ യോഗത്തിലാണ് പ്രശ്നം ഉന്നയിച്ചത്

ആവശ്യപ്പെട്ടു

അന്വേഷണത്തിന്റെ ആദ്യപടി എന്ന നിലയിലാണ് സിറ്റിംഗ് നടത്തിയത് എന്ന് ജസ്റ്റിസ് നാരായണക്കുറുപ്പ് പറഞ്ഞു രാജ്കുമാറിന്റെ ഭാര്യയും അമ്മയും മകനും ഉൾപ്പെടുന്ന പേരാണ് മൊഴി നൽകിയത്

ലോകകപ്പിനൊപ്പം ഏഷ്യൻ കപ്പിനുള്ള യോഗ്യതയും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്